സിയുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലെ തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു

കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ബന്ദിപ്പൂർ വനമേഖലയിലെ രാത്രിയാത്രാ നിരോധനത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്ന് സുപ്രീം കോടതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് നടത്താനിരുന്ന മെഡിക്കൽ സമരം മാറ്റിവെച്ചു കശ്മീർ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തേക്കും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഗയാനയിൽ പി

യുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലെ ത ട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു

ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം പരീക്ഷാത്തട്ടിപ്പ് അന്വേ ഷിക്കും

എസ് സിയുടെ ആവശ്യം പരിഗണിച്ചാണ് പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇതുസംബന്ധിച്ച ഉത്തരവിട്ടത്

ആറും സമർപ്പിക്കും യൂണിവേഴ്സിറ്റികോളേജ് ആക്രമണക്കേസിലെ പ്രതികളായ ശിവരഞ്ജിത്ത് നിസ്സാം പ്രണവ് എന്നിവർ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതായി പി എസ് സി വിജിലൻസിന്റെ പ്രാഥമികാനേ ഷണത്തിൽ കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്ത് കനത്ത മഴതുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപ പ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായതിനെത്തുടർന്നാണ് മഴ ശക്തമാ യത് അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി മലപ്പുറം കോഴി ക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണവകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തൃശ്ശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ശക്തമായ മഴയുടെ സാധ്യത പരിഗണിച്ച് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യത മുൻനിർത്തി മീൻപിടിത്തതൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് തിങ്കളാഴ്ച രാവിലെവരെ മിക്ക ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത യുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി മലപ്പുറം കോഴി ക്കോട് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു

എന്നാൽ സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമി ല്ല പാലക്കാട് അട്ടപ്പാടിയിലെ ഷോളയൂർ അഗളി പുതൂർ പഞ്ചായത്തു കളിലെ അങ്കണവാടികൾമുതൽ ഹയർസെക്കൻഡറിവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചു കനത്തമഴയെത്തുടർന്ന് ഇന്ന് കാസർകോട് ജില്ലയിലെ വെള്ളരി ക്കുണ്ട് താലൂക്കിലെ അംഗൻവാടികളും ഹയർസെക്കൻഡറി ഉൾപ്പെടെ യുള്ള വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കേള്ജു കൾക്ക് അവധി ബാധകമല്ല

പുതിയങ്ങാടിയിലാണ് വീട് പൂർണ മായും തകർന്നത്

വൈദ്യുതി ബന്ധവും തകരാറിലായി കനത്ത മഴയുടെ സാഹച ര്യത്തിൽ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി നിർദ്ദേശപ്രകാരം മുൻകരുതൽ ശക്തമാക്കി

മലയോര മേഖലയായ കേളകം അടക്കാതോട് എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി പാൽചുരത്തിൽ മണ്ണിടിഞ്ഞു

മലയോ രമേഖലയിലെ മിക്ക റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു ഉരുൾപൊ ട്ടലുണ്ടായ കണ്ണൂർ ജില്ലയിലെ അടക്കാത്തോട് മേമലക്കുന്നിൽനിന്നും രണ്ട് കുടുംബങ്ങളെയും കൊട്ടിയൂർ ചാപ്പമലയിൽനിന്ന് എട്ട് കുടുംബ ങ്ങളെയും ഇന്ന് പുലർച്ചെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി മലപ്പുറം ജില്ലയിലും മഴ തുടരുന്നു

താനൂർ താനാളൂർ മംഗലം തിരുന്നാവായ കാര ത്തൂർ എന്നിവിടങ്ങളിൽ മരംവീണ് വീടുകൾ ഭാഗികമായി തകർന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണ മെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

ഇക്കാരൃത്തിൽ നാലാഴ്ചയ്ക്കകം നില പാടറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഗതാഗത നിരോധനം തുടരണ മെന്ന കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യം അംഗീകരി ക്കുന്നതായും സുപ്രീംകോടതി അറിയിച്ചു ദേശീയ മെഡിക്കൽ കമ്മിഷൻ ബില്ലിനെതിരേ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് രാജ്യവ്യാപകമായി നടത്താനിരുന്ന മെഡിക്കൽ സമരം മാറ്റിവെച്ചു

അസോസിയേഷന്റെ ആവശ്യങ്ങൾ പരിഹ രിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഡോ ഹർഷവർധൻ അറിയിച്ചതായി ഐ

എന്നാൽ മെഡിക്കൽ വിദ്യാർഥി കളുടെ പ്രതിഷേധംതുടരും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തേക്കും ജമ്മുകശ്മീരിന് നൽകിവന്ന പ്രത്യേക പദവി റദ്ദാക്കിയ തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനങ്ങൾക്ക് വിശദീകരണം നൽകും ജമ്മു കശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റാൻ ഇടയാക്കിയ സാഹചര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കും ചൊവ്വാഴ്ച ഇത് സംബ ന്ധിച്ച് ഭരണഘടനാ ഭേദഗതിയും പ്രമേയവും പാർലമെന്റ് പാസ്സാക്കി യിരുന്നു ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ നടപടിയോട് പ്രതിക രിച്ച് പാകിസ്താൻ ഇസ്താമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മിഷണർ അജയ് വിസാരിയെ പുറത്താക്കി ഇന്ത്യയിലെ പാകിസ്താൻ ഹൈക്കമ്മിഷ ണറെ തിരിച്ചുവിളിക്കുമെന്നും ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ നിർണാ യക യോഗത്തിനുശേഷം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അറിയിച്ചു പാകിസ്താൻ വ്യോമമേഖലയ്ക്ക് മുകളിൽകൂടി ഇന്ത്യൻ വിമാനങ്ങൾ പറക്കുന്നതിന് നൽകിയിരുന്ന അനുമതിയും അവർ റദ്ദാക്കി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ഏകദിനക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം

ആദ്യ മത്സരത്തിൽ ഗയാനയിലെ പ്രോവിഡൻസിൽ ഓപ്പണർ ശിഖർധവാന്റെ തിരിച്ചുവരവാണ് ശ്രദ്ധേയം കൊച്ചിയിൽ സമാപിച്ച സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജേതാക്കളായി ഫൈനലിൽ ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്ക് കോട്ടകത്തെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ ജേതാ ക്കളായത് ലൂസ്സേഴ്സ് ഫൈനലിൽ ഇടുക്കി പാലക്കാടിനെ മറുപടിയി ല്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് മൂന്നാംസ്ഥാനത്തെത്തി ഡുറാന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐ ലീഗ് ടീമായ ഗോകുലം കേരള എഫ്

ആദ്യ മത്സരത്തിൽ ഐ

എൽ ടീമായാ ചെന്നൈയിൻ എഫ്

വൈകിട്ട് മൂന്നിന് കൊൽക്കത്ത ഹൌറ സ്റ്റേഡിയ ത്തിലാണ് മത്സരം

ബഷീറിന്റെ മരണത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സ്മരം തുടങ്ങുമെന്ന് കേരള പത്രപ്രവർത്ത കയൂണിയൻ കോഴിക്കോട്ട് അറിയിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാ ഹാരസമരം ഉൾപ്പെട്ടെ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടുപോകാനാണ് യൂണിയന്റെ തീരുമാനം ശ്രീറാം വെങ്കിട്ടരാമന് ജാമ്യം കിട്ടിയ സാഹച ര്യത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് കെ

ബഷീറിന്റെ സ്മരണയ്ക്കായി തിരൂർ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മാധ്യമ അവാർഡ് ഏർപ്പെടുത്തി തിരൂരിൽ പ്രാദേശിക പത്രപ്ര വർത്തകനായി മാധ്യമജീവിതം ആരംഭിച്ച ബഷീറിന്റെ ഓർമ്മയ്ക്കായി മലപ്പുറം ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകനാണ് കെ

ബഷീർ സ്മാരക അവാർഡ് നൽകുന്നത് ലിറ്റിൽ കൈറ്റ് സംസ്ഥാനതല ക്യാമ്പ് ഇന്ന് കളമശ്ശേരിയിൽ മന്ത്രി പ്രൊഫ

കൃഷ്ണൻകുട്ടി ഇന്ന് നേരിട്ട് വിലയിരുത്തും ഉച്ചകഴിഞ്ഞ് വവ്വാമൂല കോളിയൂർ ഭാഗത്താണ് മന്ത്രിയുടെ സന്ദർശനം കൊല്ലത്ത് ഇന്ന് സുഷമാസ്വരാജ് അനുസ്മരണ സമ്മേളനത്തിലും ബി ജെ

ശിൽപ്പശാലയിലും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിങ് ചൌഹാൻ പങ്കെടുക്കും

ജെ

സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധ രൻപിള്ള ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടു ക്കും വായ്പയെടുത്ത ഗവ ഉദ്യോഗസ്ഥയെ ഒഴിവാക്കി ജാമൃക്കാരി യിൽനിന്ന് മാത്രം കുടിശ്ശിക ഈടാക്കിയ സംസ്ഥാന സഹകരണബാ ങ്കിന്റെ നടപടി നീതിയുക്തമല്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മി ഷൻ വിലയിരുത്തി തൃശൂർ ശാഖയിൽനിന്ന് മൂന്ന് ലക്ഷം രൂപ വായ്പ യെടുക്കാൻ സഹപ്രവർത്തകയ്ക്ക് ജാമ്യംനിന്ന ജല അതോറിറ്റി ജീവന ക്കാരിയുടെ പരാതിയിൽ വായ്പക്കാരിയിൽനിന്ന് കുടിശ്ശിക ഈടാക്കാൻ കമ്മിഷൻ ജുഡീഷ്യൽ അംഗം പി മോഹൻദാസ് ഉത്തരവിട്ടു കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ എത്തുന്നതിന് മുന്നോടിയായി വ്യോമയാന ഡയറക്ടറേറ്റിലെ പ്രത്യേക സംഘം വിമാനത്താവളത്തിൽ പരിശോധന ആരംഭിച്ചു കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ ഉപകരണ ങ്ങളുടെ പ്രവർത്തനക്ഷമത സംഘം വിലയിരുത്തി

ഇന്ന് മടങ്ങുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ നടപടികൾ ഇടുക്കി വെള്ളിയാമറ്റം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാളെ ലോക ആദിവാസി ദിനാചരണം നടക്കും സംസ്ഥാനത്ത് ആദ്യമായി ഊര് വികസനസമിതി രൂപീകരിക്കുകയും പട്ടികവർഗ ഫണ്ട് പൂർണമായി ചെല വിടുകയും ചെയ്ത പഞ്ചായത്താണ് വെള്ളിയാമറ്റം

കരാർ തർക്കവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഹിന്ദുസ്ഥാൻ പെട്രോ ളിയം കോർപ്പറേഷന്റെ ഇരുമ്പനം ഗോഡൌണിലെ തൊഴിലാളി സമരം പിൻവലിച്ചു ജില്ലാ കളക്ടർ എസ് സുഹാസിന്റെ നേതൃത്വത്തിൽ നട ത്തിയ ചർച്ചയിലാണ് പ്രശ്ന പരിഹാരമായത് കോഴിക്കോട് കോട്ടൂളിയിൽ സ്കൂട്ടർ യാത്രക്കാരി റോഡിലെ കുഴി യിൽവീണ് തെറിച്ച് ലോറിക്കടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എൻജിനിയറെ പോലീസ് അറസ്റ്റ് ചെയ്തു ജല വിതരണപൈപ്പ് പുനസ്ഥാപിക്കാനെടുത്തകുഴി ശരിയായി മൂടാത്തതാണ് അപകടത്തിന് കാരണമായത് മലാപ്പറമ്പ് സ്വദേശി പി

അജിതയാണ് അപകടത്തിൽ മരിച്ചത് കോഴിക്കോട് കാരശ്ശേരിയിൽ യുവതിയുടെ ദേഹത്ത് ആസിഡ് ഒഴി ക്കുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കീഴട ങ്ങിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു മാവൂർ സ്വദേശി സുഭാ ഷാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്